സ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത ദൌത്യസേന രൂപീക രിക്കും

എസ് ആർ ടി സി പെൻഷൻ പദ്ധതിയിൽ ഇന്നലെ മാത്രം

എം സംസ്ഥാന സമ്മേളനത്തിലെ സെമിനാറിൽ ഇന്ന് കെ എം മാണിയും കാനം രാജേന്ദ്രനും പങ്കെടുക്കും കടുത്ത വേനൽച്ചൂടിനെ തുടർന്ന് തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിക്കാൻ ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകി കോഴിക്കോട്ടെ കോംട്രസ്റ്റ് നെയ്ത്തു കമ്പനി ഏറ്റെടുക്കാൻ ഗവൺമെന്റ് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ കാർട്ടറിൽ കടന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ചെന്നൈയിൻ എഫ് സിയെ നേരിടും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത ദൌത്യ സേന രൂപീ കരിക്കും മന്ത്രി വി എസ് സുനിൽകുമാർ കേന്ദ്ര വാണിജ്യമന്ത്രി സുരേഷ് പ്രഭുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ രൂപപ്പെട്ടത് ഒരു മാസത്തിനകം ദൌത്യസേന നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റബ്ബർ പ്രതിസ്ന്ധി പരിഹരി ക്കാൻ പ്രാരംഭ നടപടിയെടുക്കും നാണ്യവിള പട്ടികയിൽനിന്ന് സ്വാഭാവിക റബ്ബറിനെ കാർഷിക വിളയായി മാറ്റണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കുരുമുളക് വിലയിടിവ് മൂലമുണ്ടായ പ്രശ്നങ്ങൾ പരിഹ രിക്കാനും നടപടിയെടുക്കാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയതായി മന്ത്രി സുനിൽ കുമാർ അറിയിച്ചു

സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച നടക്കും സമ്മേളനത്തിന്റെ ഭാഗ മായി നടക്കുന്ന സെമിനാറിൽ കേരളാ കോൺഗ്രസ് നേതാവ് കെ

കേന്ദ്രകമ്മിറ്റി അംഗം ഇ

ജയരാ ജന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രസീഡിയമാണ് സമ്മേ ളന നടപടികൾ നിയന്ത്രിക്കുന്നത്

എം മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം സംബ ന്ധിച്ച ഊഹാപോഹങ്ങൾക്ക് അടിത്തറയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സംസ്ഥാനത്തെ സൂര്യാതപ സാധ്യത പരിഗണിച്ച് വെയി ലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം ക്രമീക രിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിട്ടു

ഇവരുടെ ജോലി സമയം രാവിലെ ഏഴിനും വൈകിട്ട് ഏഴിനുമിടയിൽ എട്ടുമ ണിക്കൂറായി നിജപ്പെടുത്തി ഹജ്ജ് കാട്ടയും ഒഴിവുകളും വൃക്തമാക്കി ഇന്ന് സത്യവാ ങ്മൂലം നൽകാൻ കേന്ദ്രത്തോട്ട് സുപ്രീംകോടതി ആവശ്യപ്പെ ട്ടു

നേരത്തെ സീറ്റുകൾ ബാക്കിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു

കള്ളു ഷാപ്പുകൾക്ക് ഇളവ് നൽകരുതെന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരന്റെയും ഹർജി കോടതിയിലുണ്ട്

കോഴിക്കോട്ടെ പൂട്ടിക്കിടക്കുന്ന കോംട്രസ്റ്റ് നെയ്ത്തു കമ്പനി ഏറ്റെടുക്കാൻ ഗവൺമെന്റ് ഇന്ന് വിജ്ഞാപനം പുറ പ്പെടുവിക്കും കമ്പനി ഏറ്റെടുക്കാൻ നിയമസഭ പാസ്സാക്കിയ ബില്ലിന് രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി യിരുന്നു കമ്പനി പൂട്ടിയശേഷം വിറ്റ ഭൂമി ഗവൺമെന്റ് തിരി ച്ചുപിടിക്കും ശേഷിക്കുന്ന സ്ഥലത്തിന് വിപണി വില നൽകി ഗവൺമെന്റ് ഏറ്റെടുക്കും ഈ സ്ഥലത്ത് പുതിയുനെയ്ത്തു ഫാക്ടറിയും മ്യൂസിയവും സ്ഥാപിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വിദേശത്ത് മെഡിക്കൽ പഠനത്തിന് ചേരാൻ ഉദ്ദേശിക്കു ന്നവർ നീറ്റ് പരീക്ഷ പാസ്സാകണമെന്ന വ്യവസ്ഥ ഈ വർഷം മെയ് മുതൽ നിലവിൽ വർമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാ ലയം അറിയിച്ചു മെഡിക്കൽ കൌൺസിലിൽ നിന്ന് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടി ഇപ്പോൾ പഠനം നടത്തുന്നവരെ നീറ്റ് യോഗൃതാ പരീക്ഷ നിർബന്ധമാക്കുന്നതിൽനിന്ന് ഒഴിവാക്കി യതായും മന്ത്രാലയം വ്യക്തമാക്കി റോട്ടോമാക് പേന കമ്പനിയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ ഉടമ വിക്രം കോത്താരിയെയും മകൻ രാഹുൽ കോത്താരി യെയും സി ബി ഐ അറസ്റ്റ് ചെയ്തു

നിരവ് മോദിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാധ്യതകളു ണ്ടായാൽ അത് നേരിടാനാവശ്യമായ മൂലധനവും സ്വത്തും പഞ്ചാബ് നാഷണൽ ബാങ്കിനുണ്ടെന്ന് മാനേജ്മെന്റ് അറി യിച്ചു

വയനാട്ടിൽ പുതിയ കാർഷിക കോളേജ് സ്ഥാപിക്കാനും സംസ്ഥാനത്തെ കാർഷിക കോളേജുകളിൽ ബിരുദ പഠന ത്തിന് സീറ്റ് വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു തൃശൂർ വെള്ളാ നിക്കരയിൽ ചേർന്ന കേരള കാർഷിക സർവ്വകലാശാല അക്കാദമിക് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം അമ്പ ലവയലിലായിരിക്കും പുതിയ കാർഷിക കോളേജ് തുടങ്ങു ന്നത് കേരള സർവ്വകലാശാല വൈസ് ചാൻസലറുടെ ചുമതല കണ്ണൂർ സർവ്വകലാശാല വൈസ് ചാൻസലർക്ക് നൽകി ഗവർണർ ഉത്തരവിറക്കി

കെ രാധാകൃഷ്ണൻ ഇന്ന് വൈസ് ചാൻസലർ സ്ഥാനത്തുനിന്ന് വിരമിക്കുന്നതിനെത്തു

ഗോപിനാഥ് രവീന്ദ്രൻ രണ്ട് സർവ്വക ലാശാലകളുടെയും ചുമതല ഏറ്റെടുക്കും കോഴിക്കോട്ട് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷി പ്പിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ കാർട്ടറിലെത്തി

മറ്റൊരു മത്സരത്തിൽ റെയിൽവേസ് തമിഴ്നാടിനെ കീഴ ടക്കി കാർട്ടറിൽ കടന്നു ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് കേരള പുരുഷ ടീം പഞ്ചാബി നെയും രാത്രി എട്ടരയ്ക്ക് വനിതകൾ മഹാരാഷ്ട്രയെയും നേരി ടും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയെ നേരിടും പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കേരളാ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജയിച്ചേ പറ്റൂ രണ്ട് മത്സരങ്ങൾ ശേഷിക്കെ ഗ്രൂപ്പിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി മൂന്നാം സ്ഥാനക്കാരാണ് കൊച്ചിയിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേ ഴ്സിന്റെ അവസാന ഹോം മത്സരമാണ് ഇന്നത്തേത്

പാലക്കാട് ജില്ലയിൽ ജനവാസ മേഖലകളിൽ മൂന്നുദിവസമായി ഭീതിപരതിയ കാട്ടാനകളെ കാടു കയറ്റിവിട്ടു ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് വനം വകുപ്പിന്റെയും വയനാട്ടിൽ നിന്നെത്തിയ പ്രത്യേക സംഘത്തിന്റെയും ശ്രമം വിജയിച്ചത് മാത്തൂർ മന്നംപുള്ളി കോട്ടായി കാവശ്ശേരി പ്രദേശങ്ങളിൽ എത്തിയ ആനകളെ അയ്യർ മുലയിലേക്കാണ് കയറ്റിവിട്ടത്

ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ സംഘ ടിപ്പിക്കുന്ന സംരംഭക സംഗമം മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്യും ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം നൽകാത്ത തമിഴ് നാട് നിലപാടിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കാൻ ഇന്നലെ ചിറ്റൂരിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു

ഇതിന്റെ ഭാഗമായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മീനാക്ഷിപുരം ഗോവിന്ദാപുരം വേലന്താവളം ചെക്ക് പോസ്റ്റുകളിൽ ചരക്കുവാഹനങ്ങൾ തടഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊലക്കേ സിൽ അറസ്റ്റിലായവരുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ നടക്കും

കൊല പാതകത്തിനുശേഷം ഹൈദരബാദിൽ ഒളിവിൽ കഴിയുകയാ യിരുന്ന എടപ്പാൾ സ്വദേശിയായ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നാണ് പൊലീസ് പിടികൂടിയത്

നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ജില്ലാ ആസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും അവർ പറഞ്ഞു മലപ്പുറത്തുനിന്ന് ഏഴുകോടി രൂപയുടെ ലഹരി വസ്തു ക്കൾ പിടികൂടിയ സംഭവത്തിൽ ലഹരി മരുന്ന് സംഘത്തല വനായ തമിഴ്നാട് സ്വദേശിയെ പൊലീസ് അറസ്റ്റ് ചെയ്തു

ജി മോഹൻദാസ് നടത്തിയ പരാമർശത്തിനെതിരായ കേസ് റദ്ദാ ക്കണമെന്നുആവശ്യം ഹൈക്കോടതി തള്ളി കേസിൽ ശരി യായ അന്വേഷണം നടക്കണമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി പൊലീസ് അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കി വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅ്ദനിയുടെ ജീവൻ രക്ഷിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയപാർട്ടികൾ ഇടപെടണമെന്ന് ജാമിയ അൻവാർ കൊല്ലത്ത് വാർത്താസമ്മേളുന്നത്തിൽ ആവശ്യപ്പെട്ടു ബംഗളൂരുവിലെ കേസിന്റെ വിചാരണ വേഗം പൂർത്തിയാക്കാൻ നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യ പ്പെട്ടിട്ടുണ്ട് പെരുമ്പാവൂരിനടുത്ത് കണ്ടന്തറയിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ ഇന്നലെ വൈകിട്ട് വൻ തീപിടുത്തമുണ്ടായി

എട്ട് യൂനിറ്റ് ഫയർഫോഴ്സ് കഠിനശ്രമത്തിലൂടെയാണ് തീയ ണച്ചത് അട്ടപ്പാടിയിൽ ഭക്ഷ്യധാനൃ മോഷ്ടാവെന്നു സംശയിച്ചു നാട്ടുകാർ തടഞ്ഞുവച്ചു പോലീസിൽഏൽപ്പിച്ച ആദിവാസി യുവാവ് മരിച്ചു കടുകുമണ്ണ് ഊരിലെ മധു ആണ് മരിച്ചത് യുവാവിന് മർദ്ദനമേറ്റിരുന്നതായും മരണകാരണം അന്വേഷി ക്കുമെന്നും പൊലീസ് അറിയിച്ചു ഗവി മൂഴിയാർ വനമേഖലയിലെ ആദിവാസി കുടിലുകളിൽ പകർച്ചപ്പനി ഭീഷണി ഇല്ലെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ ആർ ഗിരിജ അറിയിച്ചു ആദിവാസി കുടിലുകളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലിയിരുത്തിയശേഷമാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്